വിജയം ഉറപ്പാക്കി ബി ജെ

ശിഖ ചൌഹാൻ റാപ്പിഡ് റാണി

മുഖ്യമന്ത്രി ബി എസ് യെദ്യൂ രപ്പ കൊണ്ടുവരുന്ന വിശ്വാസ പ്രമേയത്തിൽ രാവിലെ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് പതിനേഴ് വിമത എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കി യതിനെ തുടർന്ന് ബി ജെ പി വിശ്വാസവോട്ട് നേടുമെന്ന് ഉറപ്പായിട്ടുണ്ട്

ജെ

ഇന്നലെ പതി നൊന്ന് കോൺഗ്രസ് അംഗങ്ങളെയും മൂന്ന് ജനതാദൾ എസ് എം

എമാരെയുമാണ് സ്പീക്കർ കെ

രമേഷ്കുമാർ അയോഗൃരായി പ്രഖ്യാ പിച്ചത്

അതിനിടെ സ്പീക്കർക്കെതിരെ ബി ജെ പി അവി ശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്നും റിപ്പോർട്ടുണ്ട്

കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് റീ പോസ്റ്റുമോർട്ടം കസ്റ്റഡിക്കൊല അന്വേഷിക്കാൻ ഗവൺമെന്റ് നിയോ ഗിച്ച ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മിഷനാണ് മൃതദ്ദേഹം പുറത്തെടുത്ത് പരിശോധിക്കുന്നത്

കോട്ടയം മെഡിക്കൽ കോളജിൽ നടത്തിയ ആദ്യ പോസ്റ്റു മോർട്ടത്തിൽ പരിക്കുകളുടെ പഴക്കം കണ്ടെത്താതിരുന്നതും ആന്തരാവയ വങ്ങൾ പരിശോധനക്ക് എടുക്കാതിരുന്നതും ഉൾപ്പെടെ വീഴ്ചകൾ കണ്ടെത്തി യതിനെ തുടർന്നാണ് റീ പോസ്റ്റുമോർട്ടം സംസ്കരിച്ച് മുപ്പത്തിയേഴാം ദിന മാണ് മൃതദ്ദേഹം പുറത്തെടുക്കുന്നത്

ഡി ഒക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി പോസ്റ്റുമോർട്ടത്തിന് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ഇന്നലെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രി യുമായ എസ് ജയ്പാൽ റെഡ്ഡിയുടെ സംസ്കാരം ഇന്ന് ഉച്ചക്ക് ഹൈദരാ ബാദിലെ ഹുസൈൻ സാഗർ തീരത്ത് പൂർണ ഔദ്യോഗിക ബഹുമതിക ളോടെ നടക്കും

ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട പെരുവെമ്പ് കുടിവെള്ള പദ്ധതി വിപുലീകരണം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി ഗ്രാമീണമേഖലയിൽ കുടിവെള്ളമെത്തിക്കാനാണ് ഗ വൺമെന്റ് മുൻഗണന നൽകുന്നത്

കുടിവെള്ള കണക്ഷൻ നടപടികൾ ലഘൂകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

മീന ച്ചിലാറ്റിലെ അറുമാനൂർ ഭാഗത്തുനിന്ന് മാടക്കൽ തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ചൊറിച്ചി തോട്ടിലെത്തിച്ച് വെള്ളൂർ തോട്ടിലൂടെ മീനന്തറയാറ്റിലെ ത്തിക്കുന്നതാണ് പദ്ധതി

ഐയുടെ അഭിപ്രായമെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേ ന്ദ്രൻ പറഞ്ഞു മുഖ്യധാരാ ഇടതു പാർട്ടികളെല്ലാം ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ ഐക്യം കൂടു തൽ ശക്തമാക്കണമെന്ന സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് പ്രതിപക്ഷ ഐക്യം ശക്തമായ ബദലായി മാറുമെന്ന് തമിഴ്നാട് തെളിയിക്കുന്നതായി കാനം രാജേന്ദ്രൻ പറഞ്ഞു

ഐ ദേശീയ കൌൺസിൽ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ കോഴിക്കോട്ട് ചേർന്ന മേഖലാ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു കാനം

ഐയുടെ ഡി ഐ ജി ഓഫീസ് മാർച്ചിന് നേരെയു ണ്ടായ സംഘർഷത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കലക്ടർ ഇന്ന് മുഖ്യമ ന്ത്രിയുടെ ഓഫീസിന് സമർപ്പിക്കും ചില ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥർക്കെ തിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന

സംവാദ സംസ്കാരം അറി യുന്ന ആർക്കും ഇതിനോട് യോജിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശരിയല്ലെങ്കിൽപോലും മറ്റുള്ളവരുടെ വാദം കേൾക്കാൻ സഹിഷ്ണുത കാണിക്കുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത് ഒരു പുസ്തക പ്രകാ ശന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു സ്പീക്കർ രദ്ദേഷ്ടങ മലയോര ഹൈവേയുടെ വയനാട്ട് ജില്ലാതല നിർമ്മാണം മന്ത്രി ജി സുധാ കരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ അടിസ്ഥാന വികസനത്തിന് മലയോര ഹൈവേ നാഴികക്കല്ലായി മാറുമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലയിൽ അയ്യായിരം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഗവൺമെന്റ് തുടക്കം കുറിച്ചതായും മന്ത്രി അറിയിച്ചു വയനാട് റെയിൽവെ സാധ്യമാക്കാൻ ഗവൺമെന്റ് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നും ജി സുധാകരൻ പറ ഞ്ഞു

പെൺകുട്ടിയുടെ രണ്ട് ബന്ധുക്കൾ അപ കടത്തിൽ മരിച്ചു റായ്ബറേലിയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ട്രക്ക് ഇ ടിച്ചാണ് അപകടം

ജെ പി എം എൽ എ കുൽദീപ് സൻഗാർ ഉൾപ്പെടെ ഏതാനുംപേർ ഇപ്പോൾ ജയിലിലാണ് അപകടത്തെ പ്പറ്റി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സി ബി ഐ അന്വേഷണം ആവ ശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോ പണം

ആഗസ്റ്റ് സെപ്തംബർ മാസങ്ങളിൽ മറ്റ് സംസ്ഥാ നങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സാമ്പത്തിക സർവേ ആരംഭിക്കും ഉദ്യോഗസ്ഥർ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിയാണ് കണ ക്കെടുപ്പ് നടത്തുന്നത് ദർശ്ശിക്കു കോഴിക്കോട് പുല്ലൂരാംപാറയിൽ സമാപിച്ച ഏഴാമത് അന്താരാഷ്ട്ര കയാ ക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ റഷ്യൻ താരം ഇവാൻ കൊസ്ചെക്കോവ് റാപ്പിഡ് രാജ കിരീടം നേടി റാപ്പിഡ് റാണി കിരീടം മധ്യപ്രദേശ് താരം ശിഖ ചൌഹാ നാണ് ബോട്ടർക്രോസ് ഡൌൺറിവർ സൂപ്പർ ഫൈനൽ എന്നിവയിൽ ഒന്നാം സ്ഥാനവും പ്രൊഫഷണൽ സ്ലാലോമിൽ മൂന്നാം സ്ഥാനവും നേടിയാണ് ഇവാൻ ജേതാവായത് ജൂനിയർ പെൺകുട്ടികളുടെ ഇന്ത്യൻ ടീമംഗമാണ് ശിഖ

സമാ പന ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവ റാവു ജേതാ ക്കൾക്ക് സമ്മാനം വിതരണം ചെയ്തു ജോർജ്ജ് എം തോമസ് എം

എ ഉദ്ഘാടനം ചെയ്തു

പുരുഷ ടീമിനെ ലക്നോവിൽ നേരത്തെ പ്രഖ്യാ പിച്ചിരുന്നു

വനിതാ വിഭാഗത്തിൽ ശ്രേയാ ്മേരി കമാലും പുരുഷ വിഭാഗ ത്തിൽ കെ അർജുൻ അനീഷും വ്യക്തിഗത് ചാമ്പ്യൻമാരായി പുറപ്പെട്ടത്ത നെഹ്റു ട്രോഫി വള്ളം കളി മത്സ രത്തിന്റെ നിയമാവലികൾ ക്യാപ്റ്റൻമാർക്ക് വിവരിച്ച് നൽകുന്ന ക്യാപ്റ്റൻസ് ക്സിനിക്കും ട്രാക്ക് ആന്റ് ഫീൽഡ്സ് നറുക്കെടുപ്പും ഇന്ന് ആലപ്പുഴ വൈ

എല്ലാ ടീമുകളെയും ഈ വർഷത്തെ ജലോത്സവ നിബന്ധനകൾ അറി യിക്കുന്ന പരിപാടിയാണിത് രദ്ദേഷ്ടങ കോഴിക്കോട് നാരങ്ങാതോട്ടിൽ ഇരുവഴിഞ്ഞി പുഴയിൽ അകപ്പെട്ട മൂന്നു പേരെ മുക്കം ഫയർ ഫോഴ്സ് രക്ഷപ്പെടുത്തി മലപ്പുറം മഞ്ചേരി സ്വദേശിക ളാണ് പുഴയിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടത് രദേഷ്ടെടു മെഡിക്കൽ ഇൻഷൂറൻസ് പദ്ധതി വികലമായി നടപ്പാക്കുന്നതിനെതി രെ കേരളാ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഇടുക്കി കളക്ടറേറ്റ് പടിക്കലേക്ക് നടത്തുന്ന മാർച്ച് യൂണിയൻ സംസ്ഥാന സെക്രട്ട റിയേറ്റ് അംഗം എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും രദേഷ്ടെടു ഇന്നലെ കോഴിക്കോട്ട് നിര്യാതനായ എഴുത്തുകാരനും അധ്യാപകനു ട മായ പി എൻ ദാസിന്റെ മൃതദേഹം രാവിലെ ടൌൺഹാളിൽ പൊതുദർശന ത്തിന് വെയ്ക്കും

വൈദിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ കെ ആർ നമ്പൂതിരി എൻഡോവ്മെന്റ് അദ്ദേഹം നേടിയിരുന്നു രദ്ദേഷ്ടങ വയനാടിനെ വികസനരംഗത്ത് പിന്നോട്ടടിച്ച രാത്രി യാത്രാ നിരോധന ത്തിന് ഇന്ന് പത്തുവർഷം പൂർത്തിയാകുന്നു

ഇതിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ ഉയർന്നെങ്കിലും വിജയത്തിലെത്തി യില്ല നിരോധനം ചോദ്യംചെയ്ത് നൽകിയ ഹർജികൾ സുപ്രീംകോടതി യുടെ പരിഗണനയിലാണ് രംഭട്ട്ട്ട്ട്ട്ട്ട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്ന ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ എൻ

എസ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും ചട്ടം പരിഷ്കരി ക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതി രുമാണെന്ന് ഹർജിയിൽ പറയുന്നു രുട്ട്ട്ട്ട്ട്ട്ട്ട കച്ചവടക്കാരിൽ നിന്ന് പ്രളയസെസ് പിരിക്കുന്നതിൽ കോഴിക്കോട്ട് ചേർന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൌൺസിൽ പ്രതിഷേധിച്ചു ഓഗസ്റ്റ് ഒന്നു മുതൽ ഏർപ്പെടുത്തുന്ന പ്രളയ സെസ് നിർത്തലാക്കണമെന്നും കെട്ടിട വാടക നിയന്ത്രണ നിയമം പരിഷ്ക രിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു രദ്ദേഷ്ടങ അമ്പൂരി രാഖി കൊലക്കേസിൽ ഒന്നാം പ്രതി അഖിലിനെ സംഭവ സ്ഥല ത്തെത്തിച്ച് ഇന്ന് തെളിവെടുക്കും രാഖിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കയർ കണ്ടെടുക്കാനാണ് തെളിവെടുപ്പ്

ബി എസ് ഇ സ്കൂളുകളുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗ ണിക്കും ഈ വിഷയത്തിൽ ഗവൺമെന്റ് നിലപാട് ഹൈക്കോടതിയെ ഇന്ന് അറിയിക്കും